മത്സൃത്തൊഴിലാളികൾ അടുത്ത ശനിയാഴ്ച മുതൽ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ സുരക്ഷാചുമതല ഏറ്റെടുക്കാൻ സി ഐ എസ്

സാമ്പത്തിക വികസനത്തിന് ഊർജ്ജം അത്യാവശ്യ ഘടകമാണെന്ന് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഊർജ്ജത്തിന്റെ കുറവ് ഒരു രാജ്യത്തെയും ദാരി ദ്ര്യത്തിൽ നിന്ന് പുറത്തുവരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബ്രിട്ടന്റെ സമ്പദ്ഘടനയെ ഇന്ത്യ അതിജീവിക്കുന്ന കാലം വിദൂരമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗുജറാത്തിലെ അഞ്ചാറിൽ മുംന്ത്ര എൽ എൻ ജി ടെർമി നൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി

ഗാന്ധിജിയുടെ ജീവിതത്തിൽ ശുചിത്വത്തിന് ഏറെ പ്രാധാന്യമുണ്ടാ യിരുന്നു വെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ശുചിത്വമാണോ സ്വാതന്ത്ര്യമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുക്കു ന്നത് ശുചിത്വമായിരിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു അത്രമാത്രം ശുചി ത്വത്തോട് അദ്ദേഹം പ്രതിബദ്ധത പുലർത്തിയിരുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഗുജറാത്തിലെ രാജ്കോട്ടിൽ മഹാത്മാഗാന്ധി മ്യൂസിയം രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരി സ്ഥിതി അവാർഡിന് ഗാന്ധിജിയാണ് ഏറ്റവും അർഹനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷം യോഗം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്ര ട്ടറി അശോക് ഗെഹ്ലോട്ട് ന്യൂഡൽഹിയിൽ അറിയിച്ചു മഹാത്മാഗാന്ധിയുടെ സന്ദേശമായ സ്നേഹം സമാധാനം സാഹോദര്യം മതസൌഹാർദ്ദം എന്നിവ പിന്തുട രാൻ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം യോഗം അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയും ആർ എസ് എസും വിദ്ധേഷ രാഷ്ട്രീയവുംഅക്ര മങ്ങളും നടത്തുന്ന ഈ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വാർധയിൽ നാളെ ഉച്ചകഴിഞ്ഞ് സമാധാന മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഗെഹ്ലോട്ട് അറിയിച്ചു ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്പത്തിൽ തുടർനടപടികൾ ചർച്ച ചെയ്യാൻ ഉന്നതതലയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ശബരിമല യിൽ എത്തുന്നവർക്കായി ഒരുക്കേണ്ട സംവിധാനങ്ങളെകുറിച്ച് യോഗം തീരുമാ നമെടുക്കും ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഭക്തർക്കായി ഒരു ക്കേണ്ട അടിസ്ഥാനസൌകര്യങ്ങളും ക്രമീകരണങ്ങൾ സംബന്ധിച്ചും തീരുമാനമു ണ്ടാകും

വിധിയുണ്ടാക്കുന്ന സാമൂഹ്യപ്ര ത്യാഘാതവും പ്രായോഗിക ബുദ്ധിമുട്ടുകളും കണക്കിലെടുക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമലയിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും മാനി ക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

ഏഴ് എട്ട് തിയ്യതികളിൽ ഈ ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അറബിക്കടലിന്റെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ട് ന്യൂനമർദ്ദത്തെ തുടർന്ന് കടൽ അതീവ പ്രക്ഷുബ്പമാകുവാൻ സാധ്യത്യുള്ളതിനാൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ അടുത്ത ശനിയാഴ്ച മുതൽ കടലിൽ പോക രുതെന്നും മുന്നറിയിപ്പുണ്ട് ദീർഘനാളത്തേക്ക് അറബിക്കടലിൽ മത്സ്യബന്ധന ത്തിന് പോയവർ വെള്ളിയാഴ്ചയ്ക്കകം സുരക്ഷിതമായി തീരം അണയണം എന്നും കാലാവസ്ഥാനിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി പത്തനംതിട്ട ജില്ല കളിൽ കേന്ദ്ര കാലാവസ്ഥാനിരീക്ഷണ വകുപ്പ് നാളെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു

് അതേസമയം തെക്കുപടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങിയതായി കാലാവസ്ഥാ നിരീക്ഷണവകുപ്പ് ന്യൂഡൽഹിയിൽ അറിയിച്ചു എന്നാൽ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഒരാഴ്ചകൂടി മഴ ലഭിക്കുമെന്നും വകുപ്പ് വ്യക്തമാ ക്കി ഇത്തവണ കാലവർഷകാലത്ത് കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിച്ചത്

കണ്ണൂർ വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നതിന് സി ഐ എസ് എഫ് സംഘം ഇന്നെത്തും

അതിനിടെ ഇൻസ്ട്രുമെന്റ് അപ്രോച്ച് പ്രൊസീജ്യർ പരിശോധിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന്റെ വിമാനം നാളെ പരീക്ഷണ പറക്കൽ നടത്തും

യങ്ങളിൽ നടത്തിയ പഠനവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു ശുപാർശക ളിന്മേൽ കൂടുതൽ പഠനം നടത്തിയശേഷം അനന്തര നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ലോക കേരള സഭാ സെക്രട്ടേറിയറ്റിന്റെ പ്രഥമയോഗം ചീഫ് സെക്ര ട്ടറി ടോം ജോസിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു മേഖലാ സമ്മേ ളനങ്ങൾ നടത്തുന്നതും അടുത്ത ലോക കേരള സഭ ചേരുന്നതും സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു

ബംഗളുരുവിൽ നടന്ന മത്സരത്തിൽ ആദ്യപകുതിയിൽ വെനസ്വല താരം മിക്കുവാണ് വിജയഗോൾ നേടിയത് കഴിഞ്ഞ സീസണിൽ കലാശപ്പോരിൽ ചെന്നൈയിൻ എഫ് സിയോട് ബംഗളുരു എഫ് സി പരാജയപ്പെട്ടിരുന്നു ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവ എഫ് സിയെ നേരിടും

ഇന്ന് ജയിച്ച് സെമിയിൽ കടന്നാൽ അടുത്ത വ്വർഷം പെറുവിൽ നട ക്കുന്ന ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യ യോഗ്യത നേടും തിരുവനന്തപുരത്ത് സമാപിച്ച ഏഷ്യൻ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷി പ്പിൽ കിരീടം ഇന്ത്യക്ക് തുടർച്ചയായി എട്ടാം തവണയാണ് ഇന്ത്യ ജേതാക്കളാവു ന്നത്

വിയറ്റ്നാമിനാണ് രണ്ടാം സ്ഥാനം മലേഷ്യയും ദുബായിയും മൂന്നാം സ്ഥാനം പങ്കുവെച്ചു വിജയി കൾക്ക് ഗവർണർ പി സദാശിവം ട്രോഫികൾ സമ്മാനിച്ചു ് ് കാലിക്കറ്റ് സർവകലാശാലയിൽ സമാപിച്ച മലപ്പുറം ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ഐഡിയൽ കടകശ്ശേരി ജേതാക്കളായി തവനൂർ സ്പോർട്സ് അക്കാദമി ക്കാണ് രണ്ടാം സ്ഥാനം ് ് ് ് ് ് ് ് ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഇന്ന് ദേശീയ പോഷകാഹാര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും രാവിലെ ദേശീയ ആരോഗ്യദൌത്യം ജില്ലാ മേധാവി ഡോക്ടർ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും

ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ടീച്ചർമാരും ഐ സി ഡി എസ് സൂപ്പർവൈസർമാരും പരിപാടിയിൽ പങ്കെടുക്കും ് ് ് ് ് ് ് ് പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീ സർ അറിയിച്ചു കോയിപ്രം കാഞ്ഞീറ്റുകര ചന്ദനപ്പള്ളി മലയാലപ്പുഴ വള്ളിക്കോ ട് പള്ളിക്കൽ റാന്നി പഴവങ്ങാടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ് ് ് ് ് ് ് ് പ്രളയക്കെടുതിയിൽ ഇപ്പോഴും ദൂരിതമനുഭവിക്കുന്ന ഇടുക്കി ശാന്തമ്പാറ പഞ്ചായത്തിലെ ആടുവിളന്താൻ കുടിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളും വീട്ടുപകരണങ്ങളും നൽകി അതിർത്തി മലനിരയോടും മതികെട്ടാൻ ദേശീയ ഉദ്യോനത്തോടും ചേർന്നുകിടക്കുന്ന ആടുവിളന്താൻ ആദിവാസി കുടിയിലെ പ്രതിസന്ധികൾ മനസ്സിലാക്കി യാണ് നെടുങ്കണ്ടം റോട്ടറി ക്ലബ്ബും ബാർ അസോസി യേഷനും സഹായവുമായി എത്തിയത്

പ്രളയബാധിതർക്ക് കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന വായ്പാ പദ്ധതി യുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം ഇന്ന് തിരുവല്ലയിൽ മന്ത്രി മാത്യു ടി തോമസ് നിർവ്വഹിക്കും ഒരുലക്ഷം രൂപവരെയാണ് പദ്ധതിയിലൂടെ വായ്പ ലഭിക്കുന്നത് ് ് ് ് ് ് ് ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് കൊണ്ടോട്ടിയിലെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി പാട്ടിലൂടെ സമാ ഹരിച്ച അഞ്ചുലക്ഷം രൂപ കൈമാറി അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ കെ

ജലീൽ തുക ഏറ്റുവാങ്ങി

സാലറി ചലഞ്ചിനോട് നോ പറയാൻ കേരളത്തിലെ ഗവൺമെന്റ് ജീവനക്കാർ തയ്യാറാകണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ

പ്രളയകാലത്ത് ദുരിതത്തിൽപ്പെട്ട വരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് സംസ്ഥാനത്തെ ഗവൺമെന്റ് ജീവനക്കാരെന്നും അവരുടെ ശമ്പളത്തിൽ കൈയ്യിട്ടുവാരാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് സംസ്ഥാന ഗവൺമെന്റ് അവഗണിച്ചതാണ് പ്രളയത്തിനിടയാക്കിയതെന്നും മനുഷ്യനിർമ്മിത പ്രളയത്തെപ്പറ്റി ജുഡീഷ്യൽ അമ്പേഷണം നടത്തണമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശ് ആവശ്യപ്പെട്ടു

കുട്ടനാട് പാക്കേജിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗിന് നിവേദ്രനം നൽകി ട പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തി ലാണ് പദ്ധതിയെകുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് നിവേ ദനം നൽകിയത്

കാളികാവിൽ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഗ്രാമയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു തിരൂർ നടക്കാവിൽ സുഹൈൽ ആണ് മരിച്ചത്

കായംകുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ഭഗ വതിപ്പടി സ്വദേശി ശ്രീജിത്താണ് മരിച്ചത് ചെന്നൈയിൽ നിന്ന് പിടികൂടി കേരളത്തിലെത്തിച്ച കൊള്ളപ്പലിശ ഇടപാടുകാരൻ മഹാരാജ മഹാദേവന് കോടതി ഒരു ദിവസത്തെ ജാമ്യം അനു വദിച്ചു

വനമേഖലയിൽ പ്രത്യേകിച്ച് വനമേഖലയിലെ ടൂറിസം പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം ഇല്ലാതാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപി ക്കുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങളും അവയുടെ ഉറവിട മേഖലകളും വനം വകുപ്പ് ശേഖരിക്കും ഇടുക്കി ജില്ലയിലെ നേര്യമംഗലം വാളറ വനമേഖല യിലാണ് മാലിന്യനിക്ഷേപം തടയുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ത്

എമാരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം നിർദേശിച്ചു